ന് വിദ്യാഭ്യാസ മേഖലയിൽ ്സമ്ഗ്ര മാറ്റം കൊണ്ടുവരുന്ന ദേശീയ വിദ്യാഭ്യാസ നയം ഉല്പട്ടു ഘട്ടമായി നടപ്പാക്കുമെന്ന് കേന്ദ്രം

ഇന്ത്യ പൊരുതുന്നു

കോവിഡ് വാക്സിൻ പുറത്തിറക്കി യതിൽ ഇന്തൃയെ പ്രശംസിച്ചുകൊണ്ട് നേരത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തിരുന്നു കോവിഡ് വ്യാപനത്തിൽ നിന്നും രക്ഷ നേടാൻ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ എല്ലാവരേയും സഹായിക്കുമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം സോളിഹിന്റെ സന്ദേശത്തിനോട് ശ്രീ

ഭൂട്ടാൻ പ്രധാനമന്ത്രിയും ഇന്ത്യയെ അനുമോദിച്ചു

ഗുജറാത്തിലെ ലോകപ്രശസ്തമായ സോമർീഥിക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റിന്റെ ചുമതല

ട്രസ്റ്റിന്റെ മുൻ ചെയർമാനും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിരുന്ന അന്തരിച്ച കേശുഭായ് പട്ടേലിന് ട്രസ്റ്റ് ഭാരവാഹികൾ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ട്രസ്റ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു

കത്തോലിക്കാ സഭയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാവും പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുകയെന്ന് സഭാവൃത്തങ്ങൾ അറിയിച്ചു

ഇന്നലെ വൈകിട്ടോടെയാണ് ചർച്ച മാറ്റിയതായി കൃഷിമന്ത്രാലയം അറിയിച്ചത് അതേസമയം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും

കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ഓൺലൈനായി നടന്ന ചർച്ചയിൽ പങ്കെടുത്തു സഹകരണ ഫെഡറലിസത്തിന്റെ അടയാളമായി ചർച്ചയെ സൂചിപ്പിച്ചു നിർമ്മലാ സീതാരാമൻ പകർച്ചവ്യാധിയ്ക്കെതിരെ രാജ്യം ഒത്തൊരുമിച്ച് പോരാടിയതിനെ അഭിനന്ദിച്ചു പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പ്രദേശങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതിന് വായ്പയെടുക്കൽ പരിധി വർദ്ധിപ്പിച്ചതിനും അടിയന്തര വായ്പ അനുവദിച്ചതിനും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ കേന്ദ്രമന്ത്രിക്ക് നന്ദി അറിയിച്ചു കേന്ദ്ര ബജറ്റിനായുള്ള വിവിധ നിർദ്ദേശങ്ങളും ചർച്ചയിൽ പങ്കുവച്ചു

ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനും സമഗ്ര ശിക്ഷാ അവലോകനവും സംബന്ധിച്ച് ശില്പശാലകളുടെ പരമ്പര കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിരുന്നു

സ്കൂൾ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യൻ ആംഗ്യഭാഷാ നിഘണ്ടു വികസിപ്പിക്കുന്നതിനായി ആംഗൃഭാഷാ ഗവേഷണ പരിശീലന കേന്ദ്രവും എൻ സി

ആർ

ബി എസ് ഇ പരീക്ഷ പരിഷ്ക്കരിക്കാനും മെച്ചപ്പെട്ടുത്താനുമുള്ള നടപടികൾ ആരംഭിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു

ഇതിനെ തുടർന്ന് രോഗബാധ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക കേന്ദ്ര സംഘത്തെ രൂപീകരിച്ചു ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉൾപ്പെടെ പക്ഷിപ്പനി ബാധിത മേഖലകളിൽ കേന്ദ്രസംഘം സന്ദർശനം നടത്തും

മുരളീധരൻ ഇന്ന് യു എ ഇയിലെത്തും

എ ഇ സർക്കാരിലെ ഉന്നതവൃക്തികളുമായും ഇന്ത്യൻ സമൂഹവുമായും മന്ത്രി കൂടികാഴ്ച നടത്തും ഇന്ത്യ യുഎഇ ഉഭയകക്ഷി വിഷയങ്ങളും അന്താരാഷ്ട്ര പ്രശ്നങ്ങളും കൂടികാഴ്ചയിൽ ചർച്ചയാകും

ഇ യിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചർച്ചയിൽ ഊന്നൽ നൽകും

മുൻപില്ലാത്ത വിധം അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്

ഇതിനുപുറമെ വൻതോതിൽ പോലീസ് ഉദ്യോഗസ്ഥരും സൂര്ക്ഷാ് ഉദ്യോഗസ്ഥരുമുണ്ട് സാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ഒരുക്കുന്ന സുരക്ഷയുടെ രണ്ടര ഇരട്ടിയാണിത് ചടങ്ങിന് മൂന്നോടിയായി അക്രമ ഭീഷണികളും കലാപ സൂചനകളും ഉയരു്ന്ന സാഹചര്യത്തിലാണ് ഇത്തരം സന്നാഹമൊരുക്കിയത് വൈസ് പ്രസിഡന്റായി അധികാരമേൽക്കു ന്നതിന്റെ മുന്നോടിയായി കമല ഹാരിസ് യു എസ് സെനറ്റ് അംഗത്വം രാജിവച്ചു വൈസ് പ്രസിഡന്റാകുന്നതോടെ കമല ഹാരിസ് സെനറ്റിന്റെ അധ്യക്ഷയാവും

എസ് കോൺഗ്രസിന്റെ ഉപരിസഭയിൽ രണ്ടുവർഷം കൂടി കാലാവധി അവശേഷിക്കെയാണ് രാജിവച്ചത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാവുന്ന ആദ്യ സ്ത്രീ ആഫ്രിക്കൻ വംശജരിൽ നിന്നും ദക്ഷിണേഷ്യൻ ഇന്ത്യൻ പാരമ്പരൃത്തിൽ നിന്നും ആദൃ ആൾ എന്നീ ഖ്യാതികളോടെയാണ് കമല ഹാരിസ് വൈറ്റ്ഹൌസിലെത്തുന്നത്

അടുത്ത തെരഞ്ഞെടുപ്പിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് എതിരാളിയാകുമെന്ന് കരുതുന്ന നവാൽനി ഞായറാഴ്ചയാണ് ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയത്

ദരിദ്ര രാജ്യങ്ങളിലെ വൃദ്ധർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വാക്സിൻ ലഭിക്കുന്നതിന് മുമ്പ് സമ്പന്ന രാജ്യങ്ങളിലെ ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് വാക്സിൻ ലഭിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ഫ്റ്റുഞ്ഞു

പരമ്പരയിൽ ഇരു ടീമും ഓരോ മത്സരം ജയിച്ചു ഒരു കളി സമനിലയിലായി പരമ്പര സമനില ആയാലും ഇന്ത്യയ്ക്ക് ബോഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താനാകും

വി വിജയദാസിന്റെ സംസ്ക്കാരം ഇന്ന് പകൽ പാലക്കാട് ചന്ദ്ര നഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടക്കും എലപ്പള്ളിയിലെ വീട്ടിലും സിപിഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതു ദർശനത്തിന് വയ്ക്കും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ന് നിയമസഭാ സമ്മേളനം ചേർന്ന് ഉടൻ പിരിയും കാര്യപരിപാടികൾ നാളത്തേക്ക് മാറ്റി

എ യുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ പി

ര്ണ്ടരക്കോടിയോളം പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്